പൊതു ജനാരോഗൃ രംഗത്തെ മികച്ചതും അനുകരണീയവുമായ ആശ്യിങ്ങൾക്കുള്ള അഞ്ചാമത് ദേശീയ ഉച്ചകോടി അസമിലെ കാസ്പിരംഗ്ദയിൽ ആരംഭിച്ചു

പ്രവർത്തനങ്ങൾക്ക് കൊച്ചിയിൽ ഇന്ന് തുടക്കമാവും

നാശനഷ്ടങ്ങളില്ല

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ത്യ ഇറ്റലി ശാസ്ത്ര സാങ്കേതിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും സംബന്ധിക്കും സാങ്കേതികവിദ്യാ കൈമാറ്റം സംയുക്ത സംരംഭം ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ വിപണി സൌകര്യം തുടങ്ങിയവയാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത് ഈ വർഷം ജൂണിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റശ്രേഷം കോണ്ടിയുടെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്

മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഡൽഹിയിലെ പദ്ധതികൾ വടക്ക് കിഴക്കൻ മേഖല ചെന്നൈ എന്നിവിടങ്ങളിലെ വികസനത്തിനാണ് വായ്പ അനുവദിച്ചത്

പ്രധാനമന്ത്രി പറഞ്ഞ പോലുള്ള പ്രവർത്തനവും പരിഷ്ക്കരണുവും പരിവർത്തനവുമാണ് വേണ്ടതെന്ന് ആരോഗ്യമന്ത്രി ജെ

അരോഗൃ മേഖലയുടെ ഉന്നമനത്തിനായി വിവിധ ് സ്റ്റസ്ഥാനങ്ങൾ നടപ്പിലാക്കി വരുന്ന നൂതനവും മികവുറ്റതുമായി പ്രദ്ധതികളുടെ പങ്കുവയ്ക്കലാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നതെന്ന് ആകാശ്വാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

കൊച്ചി കപ്പൽശാലയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഡ്രൈഡോക്കിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കും

അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ കൈകാര്യം ചെയ്യാൻ നിർദ്ദിഷ്ട ഡ്രൈഡോക്കിന് കഴിയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന രണ്ടു യാത്രാകപ്പലുകളുടെ നിർമാണോദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവ്വഹിക്കും

ജെ

പുറത്തിറക്കി

ജെ

ശേഷിക്കുന്നത് റായ്പൂർ നോർത്ത് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയാണ്

ന്ടാട് വിടുന്ന സാമ്പത്തിക കുറ്റവാളികളെ സംബന്ധിക്കുന്ന ച്ചട്ടുട്ട് ് അനുസരിച്ച് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിൽ ക്കുടിയാത്തതും ഡയറക്ടർ ശുപാർശ ചെയ്യുന്നതുമായ വ്യക്തിക്ക് പരാ്തി നീൽകാമെന്ന് നീരവ് മോദി വാദിച്ചു

ഇതിൽ നാല് പേർ മുൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയുടെ സഖ്യകക്ഷിയിലെ അംഗങ്ങളായിരുന്നു തന്നെ പുറത്താക്കിയ പ്രസിഡന്റ് തീരുമാനത്തിനെതിരെ തലസ്ഥാന നഗരമായ കൊളംബോയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വിക്രമസിംഗേ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം ഉടൻ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും പങ്കാളിയായി

ഭൂകമ്പം മധ്യ ന്യൂസിലാന്റിന്റെ ഭാഗങ്ങൾ പിടിച്ച് കുലുക്കിയതായി ന്യൂസിലാന്റിന്റെ ഔദ്യോഗിക ഭൂകമ്പ നിരീക്ഷണ ഏജൻസി അറിയിച്ചു

അവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നതിനും ഡി

എ പരിശോധനയ്ക്കുമായി ജക്കാർത്തയിലേക്കു കൊണ്ടുപോകുമെന്ന് ഇന്തോനേഷ്യൻ ദേശീയ സുരക്ഷാ ഏജൻസി തലവൻ മുഹമ്മദ് സ്യനഗി അറിയിച്ചു വിമാനത്തിന്റെ പ്രധാന ഭാഗം കണ്ടെത്തുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് ഏജൻസി വക്താവ് യൂസഫ് ലത്തീഫ് പറഞ്ഞു

ഇത്തരം വാഹനങ്ങൾ നിരത്തിൽ കണ്ടാൽ പിടിച്ചെടുക്കുമെന്നും സുപ്രീം കോടതി വൃക്തമാക്കി ഇത്തരം വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കി അത് മോട്ടോർവാഹന വകുപ്പിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും വെബ്സൈറ്റിലും വാർത്താമാധ്യമങ്ങളിലും പ്രസിദ്ധപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾക്ക് മലിനീകരണം സംബന്ധിച്ച പരാതികൾ രേഖപ്പെടുത്താൻ ഒരു സമൂഹ മാധ്യമത്തിലൂടെ സൌകര്യമൊരുക്കാനും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് സുപ്രീം കോടതി ബഞ്ച് നിർദ്ദേശിച്ചു ക്ര പരാതികളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള ദൌത്യസേനയായി പ്പിച്ചു

സിൻഹ മുൻ ്പൊലീസ് മേധാവി പി

ഠാക്കൂർ എന്നിവർ ബീഹാറിലെ സംസ്ഥാന വിവരാവകാശ കമ്മിഷണർമാരായി നിയമിതരായി ഗവർണർ ലാൽ ജി ടണ്ഠൻ പാറ്റ്നയിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ പുതുതായി സ്ഥാനമേറ്റ കമ്മിഷണർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

നേരത്തെ ഇത് നിരോധിച്ചിരുന്നു ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലും വിൽപ്പനയിലുമുള്ള നിയന്ത്രണം ശക്തമാക്കുമെന്ന് മന്ത്രിസഭ ഇന്നലെ ഇറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു